നിയന്ത്രണ രേഖയിൽ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശ്രമം തൂടരാൻ ഇന്ത്യ ചൈന മൂന്നാംഘട്ട സൈനിക തല ചർച്ചയിൽ തീരുമാനം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച ലേ സന്ദർശിക്കും

തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ താപനിലയത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ ആറ് പേർ ് മരിച്ചു കേന്ദ്രമന്ത്രി അമിത് ഷാ സ്ഥിതി അവലോകനം ചെയ്തു

കേരളത്തിൽ കശുവണ്ടി വൃവസായത്തെ ചെറുകിട ഇടത്തരം വൃവസായ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മാർഗ്ഗരേഖയായി

ചർച്ച തികച്ചും സൌഹൃദപരമായിരുന്നവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിയന്ത്രണ രേഖയിൽ നിന്ന് സൈനികർ പിൻമാറുന്നതു സംബന്ധിച്ച് കൂടിയാലോചനകൾ തുടരും ഘട്ടം ഘട്ടമായി ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളും പ്ര സൈനിക തലത്തിനു പുറമേ നയതന്ത്ര തലത്തിലും ചർച്ചക്ട്ർ ന്ടത്തും പൂർണ്ണമായ സൈനിക പിൻമാറ്റം സങ്കീർണ്ണ്മായ വിഷയമാണെന്നും സംഘർഷം ലഘൂകരിക്കുക എന്നിതാണ് ഇരു പക്ഷങ്ങളുടെയും താല്പര്യമെന്നും സൈനിക ്യൂത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ ഭാഗത്തെ മോൾഡോ ചുസ്കൂൾ അതിർത്തി പോസ്റ്റിലാണ് മൂന്നാം ഘട്ട ചർച്ച നടന്നത് ഇക്കൂൻ ഭാഗത്തു നിന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗും ച്ചൈന്നയുടെ ദക്ഷിണ സിൻ ജിയാങ് പ്രവിശ്യാ കമാൻഡർ മേജർ ജനറീൽ ലിൻ ലിയുവുമാണ് ചർച്ചക്ക് നേതൃത്വം നൽകിയത്

സംയുക്ത സംരംഭങ്ങളിലും ഏർപ്പെടില്ല

ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കമ്പനികൾ പങ്കാളിയാവുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്ന് വാർത്താ ഏജൻസിയോട് കേന്ദ്ര മന്ത്രി പറഞ്ഞു രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെയ്പു കൂടിയാണിതെന്ന് ശ്രീ ഗഡ്കരി വ്യക്തമാക്കി

വിശദാംശങ്ങളുമായി പ്രിയ രാജൻ വോയിസ് കോവിഡ് പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ സ്വന്തം രാജ്യത്തിലേക്ക് പൌരന്മാരെ തിരികെ നാട്ടിലെത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് വന്ദേ ഭാരത്

വന്ദേഭാരത് ദൌത്യത്തിന്റെ നാലാം ഘട്ടത്തിൽ എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ ഓസ്ട്രേലിയലിൽ എത്തും ഈ മാസം മൂന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഓസ്ട്രേലിയ അമേരിക്ക ഇംഗ്ലണ്ട് കാനഡ ഗൾഫ് രാജൃങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും നാലാം ഘട്ട ദൌതൃത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാരെത്തും ഇതു കൂടാതെ കെനിയ ശ്രീലങ്ക ഫിലിപ്പീൻസ് കിർഗിസ്ഥാൻ സൌദി അറേബ്യ ബംഗ്ലാദേശ് തായ്ലാൻഡ് ദക്ഷിണാഫ്രിക്ക റഷ്യ ഓസ്ട്രേലിയ മ്യാൻമർ ജപ്പാൻ ഉക്രെയിൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലും വന്ദേ ഭാരത് ദൌതൃമുണ്ടാകും

ഇതിനായി മോട്ടോർ വാഹനാപകട നിധി രൂപീകരിക്കാനും പദ്ധതി വിഭാവനം ചെയ്യുന്നു

ആദായം വർദ്ധിപ്പിക്കാൻ ഇത് പ്രയോജനം ചെയ്യുമെന്ന് കർഷകർക്കുള്ള കത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു

സ്കീമിന്റെ നിബന്ധനകൾ പരിഷ്ക്കരിച്ച് ക്രൂവ്ണ്ടി വൃവസായത്തെ ചെറുകിട ഇടത്തരം വൃഷ്ടസായത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മന്ത്രി ്രജ്

രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചാണ് വർധന

നിരവധിപേർക്ക് പരിക്കേറ്റു

രണ്ടാമത്തെ യൂണിറ്റിലെ ഊർജ്ജ പ്താന്റിലായിരുന്നു അപകടം കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ജീവനക്കാർ അപകട സമയത്ത് പ്ലാന്റിൽ ജോലിയിലുണ്ടായിരുന്നു പൊള്ളലേറ്റ പലരുടെയും നില ഗുരുതരമാണ് പ്ലാന്റിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഉണ്ടായ രണ്ടാമത്തെ പൊട്ടിത്തെറിയാണിത് മേയിലുണ്ടായ സ്ഫോടനത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റിരുന്നു

ഐ എഫ് ഉൾപ്പെടെ വിവിധ ദുരിതാശ്വാസ ഏജൻസികൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു പൂ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രിയ്യുമാ്യി ടെലിഫോണിൽ സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി

സ്ഥിതി സാഗ്ലാർണ് നിലയിലാക്കാൻ തമിഴ്നാട് സർക്കാറിന് കേന്ദ്രത്തിന്റെ പ്പൂർണ്ണ സഹായം അദ്ദേഹം ഉറപ്പു നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറ് ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്

ജനങ്ങൾ കൂട്ടം ചേരാൻ അനുവദിക്കില്ല